സംസ്കാരം നാളെ രാമപുരം പള്ളി സ്പെമിത്തേരിയിൽ

സി സി

ലോകകപ്പ് സെമിഫൈനൽ ലൈൻഅപ്പായി

മുൻ കേന്ദ്രമന്ത്രിയും മേഘാലയ ഗവർണ്ണറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം

ജേക്കബ് പാലായിൽ അന്തരിച്ചു

ശാരീരികാസാസ്ഥ്യത്തെതുടർന്ന് രാവിലെ സ്വകാര്യ ആശുപ ത്രിയിലായിരുന്നു അന്ത്യം

രാജ്യസഭാ ഉപാധ്യക്ഷനാവുന്ന ആദ്യ മലയാളിയായിരുന്നു എം

സംസ്കാരം നാളെ ഉച്ചയ്ക്ക് പാലാ രാമപുരം പള്ളി സെമിത്തേരിയിൽ നടക്കും

ജേക്കബിന്റെ നിര്യാണത്തിൽ കെ

അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്നും നാളെയും നടത്താനിരുന്ന പാർട്ടി പരിപാടികൾ മാറ്റിവെച്ചതായും അഞ്ചുദിവസത്തെ ദുഖാചരണം നടത്തുമെന്നും അദ്ദേഹം തിരുവനന്ത പുരത്ത് പറഞ്ഞു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ ഗവൺമെന്റ് നടപടി ആരംഭിച്ചതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ തിരുവന ന്തപുരത്ത് അറിയിച്ചു

ടി വ്യവസായങ്ങൾക്ക് ഇപ്പോഴത്തേക്കാൾ ഒരു കോടി സ്ക്വയർഫീറ്റ് സ്ഥലം ഭരണകാലത്ത് ഒരുക്കാനാണ് ഇടത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ആദ്യപടിയായി ജപ്പാനിലെ നിസാൻ ഓട്ടോമോട്ടീവുമായി ധാരണാപത്രം കഴിഞ്ഞ ആഴ്ച ഒപ്പുവെ ച്ചു ഇന്റൽ ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചർച്ചകൾ തുടരുകയാണ് കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് വിപുലീകരിക്കാനും പൊതു ഹോട്ട്സ്പോട്ടുകൾ കൂടുതലായി സ്ഥാപിക്കാനും ഐ ടി

ഇതോടെ ഏറ്റവുമധികം കണക്ടിവിറ്റി നൽകുന്ന സംസ്ഥാ നമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും ഐടി ആന്റ് ഇലക്ട്രോണിക്സ് മേധാവിയുമായ എം ശിവശങ്കർ അറിയിച്ചു

പ്രസിഡന്റ് നിയമനം സംബന്ധിച്ച് പാർട്ടി ദേശീയ അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ

ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾകൂടി പരിഗണി ച്ചശേഷം പ്രഖ്യാപനമുണ്ടാവുമെന്നും തീരുമാനം വൈകില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു കുട്ടികളിലെ ലഹരിമരുന്ന് ഉപയോഗം കുറച്ചുകൊണ്ടുവരാൻ സ്വീക രിച്ച നടപടികൾ അറിയിക്കാൻ സുപ്രീംകോടതി കേന്ദ്രഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു

ദേശീയ തലത്തിൽ സർവ്വേ നടത്തി കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കണക്ക് ശേഖരി ക്കണമെന്നും നേരത്തെ കോടതി ആവശ്യപ്പെട്ടിരുന്നു മയക്കുമരുന്നു പയോഗത്തിന്റെ ഗുരുതരമായ ദൂഷ്യഫലങ്ങൾ വിദ്യാർത്ഥികളെ ബോധ്യ പ്പെടുത്താൻ ഇതുസംബന്ധിച്ച കാര്യങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനീവയിൽ നാളെ മുതൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ വ്യാപാര വികസന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ പങ്കെടുക്കും

ഇതോടൊപ്പം ഉപഭോക്തൃ സംരക്ഷണത്തിന് ഐകൃരാഷ്ട്രസഭയുടെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതും ചർച്ച ചെയ്യും പുതിയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകാൻ കേന്ദ്രം നിയോഗിച്ച കെ

ജമ്മു ശ്രീനഗർ ദേശീയ പാതയിലെ ഗതാഗതം സസ്പെന്റ് ചെയ്ത തോടെ അമർനാഥ് തീർത്ഥാടകരടക്കം ആയിരങ്ങൾ വഴിയിൽ കുടുങ്ങി യതായി റിപ്പോർട്ടൂകൾ പറയുന്നു ഹിസ്ബൂൾ മുജാഹിദ്ദീൻ കമാൻഡർ ബുർഹൻവാനിയുടെ രണ്ടാം ചരമവാർഷികദിനത്തിൽ വിഘടനവാദികൾ പണിമുടക്ക് ആഹ്വാനം നൽകിയതിനെതുടർന്നാണ് പൊലീസ് ദേശീയ പാതയിലെ ഗതാഗതം നിർത്തിവെച്ചത്

കൈലാസ മാനസസരോവർ യാത്രക്കിടെ കനത്തമഴയും കാറ്റും മൂലം നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ നാളെ തിരിച്ചെത്തും ഇന്നലെ കാഠ്മ ണ്ഡുവിലെത്തിയ സംഘം പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തി ലാണ് എത്തുക സംസ്ഥാനത്ത് മൊബൈൽ ഫോണുകളിലേക്ക് വിദേശത്തുനിന്ന് വരുന്ന തട്ടിപ്പുകോളുകളോട് ജാഗ്രത പുലർത്തണമെന്ന് പൊലീസ് മുന്ന റിയിപ്പ് നൽകി

ഇത്തരം കോളു കൾ എടുക്കുകയോ തിരികെ വിളിക്കുകയോ ചെയ്യരുതെന്ന് പൊലീസ് നിർദ്ദേശിച്ചു ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങളുടെ ലൈൻഅപ്പായി

ബുധനാഴ്ച രണ്ടാം സെമിയിൽ ക്രൊയേഷ്യയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാ ളി

ഇന്നും നാളെയും കളിയില്ല ഇന്നലെ നടന്ന കാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് സ്വീഡനെയും ക്രൊയേഷ്യ ആഥിതേയരായ റഷ്യയെയും തോൽപ്പിച്ചാണ് സെമിയിൽ കടന്നത് ഫ്രാൻസ് ഉറുഗ്വെയും ബെൽജിയം ബ്രസീലിനെയുമാണ് കാർട്ടറിൽ തോൽപ്പിച്ചത്

മൂന്നു മത്സര പരമ്പരയിൽ ഓരോന്ന് ജയിച്ച ഇരുടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണ്ണായകമാണ്

താമരശ്ശേരി ചുരത്തിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന കേടുപാടുകളും വർഷകാലത്തെ പ്രശ്നങ്ങളും മറികടക്കാൻ പൂഴിത്തോട് പടിഞ്ഞാറെ ത്തറ ബദൽപാത യാഥാർത്ഥ്യമാക്കുന്നതിന് കേന്ദ്രം അടിയന്തരമായി ഇട പെടണമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഈ ആവശ്യമു ന്നയിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധന് അദ്ദേഹം കത്ത യച്ചു

ജില്ലയിലെ മന്ത്രിമാരും ജനപ്രതിനിധി കളും രക്ഷാധികാരികളും ജില്ലാപഞ്ചായത്ത് പ്രസിഡണ്ട് ചെയർമാനു മായ സമിതിയുടെ ജനറൽ കൺവീനർ ജില്ലാകലക്ടറാണ്

ദുരന്തത്തിൽ മരിച്ചവർക്കായി സമൂഹപ്രാർത്ഥനയും അനുസ്മ രണയോഗങ്ങളും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചിട്ടുണ്ട് മന്ത്രി കെ രാജുവും എം മുകേഷ് എം എൽ എ യും ചടങ്ങുകളിൽ പങ്കെടു ക്കും

വലിയ വാഹനങ്ങൾ മാനന്തവാടിവഴിയാണ് സർവ്വീസ് നടത്തുന്നത് കണ്ണൂർ ജില്ലയിൽ ഉരുൾപൊട്ടലിനെതുടർന്ന് നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ പ്രത്യേക സമിതി സന്ദർശിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ

കൃഷി നാശത്തെ സംബന്ധിച്ച് സമിതി പരിശ്രോധന നടത്തുമെന്നും അദ്ദേഹം വൃക്തമാക്കി കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് വളവ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായി സമീപത്തുണ്ടായിരുന്ന രണ്ട് മണ്ണ് മാന്തി യന്ത്രങ്ങളും ഒരു ജീപ്പും മണ്ണിനടിയിലായി

വൈകീട്ട് മുഴക്കുന്ന് മൃദംഗശൈ ലേശ്വരി ക്ഷേത്രത്തിലാണ് ആദ്യസ്ഥീകരണം ഇന്നും നാളെയും ജില്ല യിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പര്യടനം നടത്തും

കേന്ദ്ര നഗര വികസനം ടൂറിസം സാംസ്കാരികം എന്നീ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

മലയോര മേഖലയിലാണ് മഴകെടുതി രൂക്ഷം താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട് പുഴകൾ നിറഞ്ഞൊ ഴുകുകയാണ് കനത്തമഴയെ തുടർന്ന് വയനാട് കാരാപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധൃതയുണ്ടെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു തീരത്ത് താമ സിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പിൽ വൃക്തമാക്കി